പത്രിക പിൻവലിക്കാനുള്ള ്അവ്സാന തീയതി ഇന്ന്

ഇന്ത്യൻ താരങ്ങളായ എം

കടലിൽ മൽസ്യബന്ധനത്തിന് പോകുന്നവർക്ക് ജാഗ്രതാനിർദ്ദേശം

പ്രതിപക്ഷ പാർട്ടികൾ ഗവൺമെന്റ് രൂപീകരിക്കാനുള്ള ആവശ്യം ഉന്നയിച്ചതിന് തൊട്ടുപിന്നാലെയാണ് ഗവർണർ സത്യപാൽ മാലിക് നിയമസഭ പിരിച്ചു വിട്ടത്

ഇതിനെ തുടർന്നാണ് ഗവൺമെന്റ് രൂപീകരിക്കണമെന്ന ആവശ്യം മുഫ്തി ഉന്നയിച്ചത്

പീപ്പിൾസ് കോൺഫറൻസിന് രണ്ട് സീറ്റുകളാണ് ഉള്ളത്

ഗവൺമെന്റ് രൂപീകരണവുമായി ബന്ധപ്പെട്ട് കുതിരക്കച്ചുവടവും വൻ പണമിടപാടും നടക്കാൻ സാധ്യതയുണ്ടെന്നും സുസ്ഥിര ഗവൺമെന്റ് രൂപീകരിക്കാൻ പാർട്ടികൾക്ക് കഴിയില്ലെന്നും പ്രസ്താവനയിൽ ഗവർണർ അറിയിച്ചു

തിങ്കളാഴ്ച വരെയായിരുന്നു നാമനിർദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസരം

അടുത്ത മാസം ഏഴിന് ഒറ്റഘട്ടമായാണ് ഇരു സംസ്ഥാനങ്ങളിലെയും തെരഞ്ഞെടുപ്പ്

മുഖ്യതെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഒ

റാവത്തിന്റെ നേതൃത്വത്തിലുള്ള ഉന്നതതല സംഘം ദ്വിദിന സന്ദർശനത്തിനായി ഇന്ന് തെലങ്കാനയിൽ എത്തും സംസ്ഥാന ഗവൺമെന്റിലെ ഉന്നതോദ്യോഗസ്ഥരുടെയും പൊലീസിന്റെയും സാന്നിധ്യത്തിൽ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ സംഘം വിലയിരുത്തും അംഗീകൃത രാഷ്ട്രീയ പാർട്ടികളുടെ പ്രിതീനീധികളുമായി ഉന്നതതല സംഘം ചർച്ച നടത്തും ഭിന്നശേഷിക്കാർക്ക് വോട്ട് രേഖപ്പെടുത്തുന്നതിന് ഒരുക്കിയിട്ടുള്ള പ്രത്യേക സംവിധാനങ്ങളും തെരഞ്ഞെടുപ്പ് കമ്മീഷണറുട്ടെ നേതൃത്വത്തിലുള്ള സംഘം അവലോകനം ചെയ്യും

ജെ പിക്ക് മികച്ച പ്രകടനം കാഴ്ചവയ്ക്കാൻ കഴിഞ്ഞത് പാർട്ടി പ്രവർത്തകരുടെ പ്രയ്തനഫലമായാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർട്ടിക്ക് സംസ്ഥാനത്ത് പാർട്ടിക്ക് മികച്ച വിജയം നൽകിയ ജനങ്ങൾക്ക് പ്രധാനമന്ത്രി ട്വിറ്ററിലൂടെ നന്ദി രേഖപ്പെടുത്തി ഏഴ് മേയർ സീറ്റുകളിൽ അഞ്ച് എണ്ണത്തിലും ബി

പി വിജയിച്ചു

ജെ

ഒരെണ്ണത്തിലും വിജയിച്ചു

വോട്ടർമാരുടെ വിശ്വാസം നേടുന്നതിനായി വിവിധ രാഷ്ട്രീയ നേതാക്കൾ മധ്യപ്രദേശിൽ ഉടനീളം സന്ദർശനം നടത്തുകയാണ് മിസോറാമിൽ പോസ്റ്റൽ ബാലറ്റുകളിലൂടെ വോട്ട് ചെയ്യുന്നതിനുള്ള അവസാന തീയതി ഇന്ന് വരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നീട്ടി നൽകി

ജെ

തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടു സാമൂദായിക വീഷയങ്ങൾ ഉയർത്തി വോട്ടർമാരെ സ്വാധീനിക്കാൻ ശ്രമിച്ചെന്നു ആരോപണം ഉയർന്ന സാഹചര്യത്തിലാണ് പാർട്ടി തെരഞ്ഞെട്ടുപ്പ് കമ്മീഷനെ സമീപിച്ചത് സംസ്ഥാനത്തെ നീതി യുക്തവും ് സ്പൂതന്ത്രവുമായ തെരഞ്ഞെടുപ്പിനെതിരെ കോൺഗ്ഗസ് ഗുഢാലോചന നടത്തിയെന്നും ബി ജെ

ആരോപിച്ചു ക്ര്യേന്ദ്രമന്ത്രിമാരായ മുക്താർ അബ്ബാസ് നഖ്വിയും എസ് എസ് അലുവാലിയയും വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മിഷന് നിവേദനം സമർപ്പിച്ചു

രാജ്യത്തിന്റെ പരിവർത്തന യാത്രയിൽ പങ്കാളികളാകാൻ അദ്ദേഹം ഇന്ത്യൻ വ്യവസായിക സമൂഹത്തോട് ആഹ്വാനം ചെയ്തു നാല് ദിന സന്ദർശനത്തിന്റെ ഭാഗമായി ഓസ്ട്രേലിയയിലെ സിഡ്നിയിൽ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം വിയറ്റ്നാം സന്ദർശനം പൂർത്തിയാക്കി ഇന്നലെയാണ് രാഷ്ട്രപതി സിഡ്നിയിൽ എത്തിയത് ഇതോടെ ഓസ്ട്രേലിയ സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതിയായി ശ്രീ

യുദ്ധത്തിൽ ജീവൻ ബലികഴിച്ച ധീരൻമാർക്കായി അദ്ദേഹം പുഷ്പചക്രം അർപ്പിച്ചു ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി സ്കോട്ട് മോറിസണുമായി ശ്രീ കോവിന്ദ് ഇന്ന് ചർച്ച നടത്തും പ്രധാനപ്പെട്ട ചില കരാറുകളിലും ഇരു രാജ്യങ്ങളും ഒപ്പ് വയ്ക്കും

റിപ്പോർട്ട് വിശദമായി പരിശോധിച്ച ശേഷം ഹാജരാക്കാൻ പഞ്ചാബ് മുഖ്യമന്ത്രി അമരീന്ദർ സിംഗ് സംസ്ഥാനത്തെ ആഭ്യന്തര ്രസെക്രട്ടറിയോട് ആവശ്യപ്പെട്ടു

ഇന്ത്യയും ലാവോസും തമ്മിലുള്ള ഒമ്പതാമത് വാർഷിക യ്യോഗിത്തെ ശ്രീമതി സുഷമ സ്വരാജ് അഭിസംബോധന ചെയ്യും

ലാവോസ് വിദേശകാര്യ മന്ത്രിയുമായും ശ്രീമതി സുഷമ സ്വരാജ് കൂടിക്കാഴ്ച നടത്തും

ശ്രീലങ്കയിലെ പുതിയ ഗവൺമെന്റിനെതിരെ അവിശ്വാസ പ്രമേയം വീണ്ടും അവതരിപ്പിക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ മന്ത്രിമാരുടെ സെക്രട്ടറിമാർക്ക് ധനക്രയ വിക്രയങ്ങൾക്കുള്ള അധികാരം ഉണ്ടായിരിക്കരുത് എന്ന ഉപക്ഷേപമാണ് സമർപ്പിച്ചത് ചട്ടങ്ങൾ മറി കടക്കുന്ന സെക്രട്ടറിമാർ നിയമ ലംഘനമായിരിക്കും നടത്തുന്നതെന്നും പ്രമേയത്തിൽ പറയുന്നു അതേസമയം ശ്രീലങ്കൻ പാർലമെന്റ് സ്പീക്കർ കരു ജയസൂര്യ പാർലമെന്റിനു മുന്നിൽ നടക്കുന്ന പ്രതിഷേധങ്ങളെ അപലപിച്ചു

പാർലമെന്റിൽ പ്രതിനിധികളുടെ ഭൂരിപക്ഷമാണ് പരിഗണിക്കുന്നതെന്നും സ്പീക്കർ പറഞ്ഞു

ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന പ്രദർശനം മൂന്ന് ദിവസം നീളും

നേപ്പാൾ പൊതു ഗതാഗത വകുപ്പ്മന്ത്രി രഘുബീർ മഹാസേത് പ്രദർശനം ഉദ്ഘാടനം ചെയ്യും

നേപ്പാളും ഇന്ത്യയും തമ്മിലുള്ള നിർമ്മാണ് ർ ് ഗത്തെ സഹകരണം ത്വരിതപ്പെടുത്തുകയാണ് പ്രദർശനത്തിന്റെ ലക്ഷ്യം

ചലച്ചിത്ര സംവിധായകർ താരങ്ങൾ ജൂറി അംഗങ്ങൾ മുതിർന്ന ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ ചലച്ചിത്രോത്സവ സംഘാടകർ തുടങ്ങി ഇന്ത്യയിൽ നിന്നും വിദേശത്ത് നിന്നുമുള്ളവർക്ക് തങ്ങളുടെ ആശയങ്ങൾ സ്വതന്ത്രമായി പ്രകടിപ്പിക്കുന്നതിനുള്ള വേദിയാണ് ഓപ്പൺ ഫോറം ചലച്ചിത്ര സംസ്കാരം പ്രചരിപ്പിക്കുന്നതിലും രാജ്യമെമ്പാടും ചലച്ചിത്രോത്സവങ്ങൾ സംഘടിപ്പിക്കുന്നതിലും അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിനുള്ള പങ്ക് എന്ന വിഷയത്തിലാണ് ഇന്ന് ഓപ്പൺ ഫോറം സംഘടിപ്പിക്കുക ചലച്ചിത്ര താരം രാഹുൽ റവായ് ഐ

ഐ തലവൻ ചൈതന്യ പ്രസാദ് ഗോവ എന്റർടേയ്ൻമെന്റ് സൊസൈറ്റി വൈസ് ചെയർമാൻ രാജേന്ദ്ര തലക് തുടങ്ങിയ പ്രമുഖർ പരിപാടിയിൽ പങ്കെടുക്കും

കൂടുതൽ വിവരങ്ങളുമായി പ്രിയ

അഞ്ച് തവണ ലോക ചാമ്പ്യനായ മേരി കോം വനിതാ ലോക ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ അപൂർവ്വ നേട്ടം സ്വന്തമാക്കാനാണ് ഇത്തവണ ലക്ഷ്യമിടുന്നത്

മറ്റ് ഇന്ത്യൻ താരങ്ങളായ സോണിയ ചഹൽ സിമ്രൻജിത്ത് കൌർ എന്നിവരുടെ മത്സരങ്ങൾ നാളെയാണ്

ഈ പ്രദേശങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകരുതെന്നും കാലാവസ്ഥ നിരീക്ഷണകേന്ദ്രം മുന്നറിയിപ്പ് നൽകി